ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശിക പത്രിക സമർപ്പണം നാളെ അവസാനിക്കും

തട്ടികൊണ്ടുപ്പോിയി ്മതപരിവർത്തനം നടത്തിയ സംഭവത്തിൽ പാ്കിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറോട് ഗവൺമെന്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു

ഐ

ബി മുക്ത രാജ്യമാകുമെന്ന് പ്രധാന മന്ത്രി നരേന്ദ്രമോദി

ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പത്രിക സമർപ്പണം നാളെ അവസാനിക്കും

മുതിർന്ന നേതാവും എം

എ യുമായ മുഹമ്മദ് അസംഖാൻ റാംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും പാർട്ടി പ്രഖ്യാപിച്ചു

ബിഹാറിലെ ഭഗൽപുർ ബങ്ക സീറ്റുകളിൽ ആർ

ബങ്കയിൽ ജയ്പ്രകാശ് നാരായൺ യാദവും ഷൈലേഷ്കുമാർ ഏലിയാസ് ബുലോ മണ്ഡൽ ഭഗൽപുരിലും മത്സരിക്കുമെന്ന് ആർ

കിഷൻ ഗഞ്ച് കത്യാർ പുർണിയ എന്നിവയാണ് കോൺഗ്രസ്സ് മത്സരിക്കുന്ന മണ്ഡലങ്ങൾ

ജെ പി പാട്ന ലോക്സഭാ സീറ്റിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് കിഴക്കൻ ചമ്പാരൻ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രാധാ മോഹൻ സിംഗ് ആണ് ബി ജെ

ബീഹാറിലെ നാല് മണ്ഡലങ്ങളിൽ സി

ഐ എം എൽ മത്സരിക്കുമെന്ന് പാർട്ടി അറിയിച്ചു അര സിവാൻ കരകട്ട് ജഹ്നാബാദ് എന്നിവിടങ്ങളിലാണ് സി പി

ജവഹർലാൽനെഹ്റു സർവ്വകലാശാല മുൻ വിദ്യാർത്ഥി കനയ്യകുമാറിനെ ബഹുസരായ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി സി

കർണ്ണാടകയിൽ മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന ജെ

അതിനിടെ ഉത്തർപ്രദേശിലെ അമേഠിക്കു പുറമേ കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെകുറിച്ച് ഇതുവരെ അന്തിമതീരുമാനമായിട്ടില്ലെന്ന് കോൺഗ്രസ്സ് വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞു

ഭരണ കക്ഷിയായ ബി ജെ പി യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് പാർട്ടി സംസ്ഥാന അദ്ധ്യക്ഷനും രാജ്യസഭാംഗവുമായ കെ ഭാബാനന്ദ് സിംഗ് എന്നിവർ ചേർന്ന് തുടക്കം കുറിച്ചു ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിൽ ഡോ

കെ രഞ്ജൻ സിംഗ് ഔട്ടർ മണിപ്പൂരിൽ ബഞ്ചമിൻ മെയ്റ്റ് എന്നിവരാണ് ബി ജെ

സംസ്ഥാനത്ത് കോൺഗ്രസ്സ് സ്ഥാനാർത്ഥികളായി മുൻ ചീഫ് സെക്രട്ടറി ഒ നബാകിഷോർ ഇന്നർ മണിപ്പൂരിലും കെ ജയിംസ് ഔട്ടർ മണിപ്പൂരിലും മത്സരിക്കും

സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ സംസ്ഥാന നോഡൽ ഓഫീസറായ ഐ

സുനിൽ ഗാർഗ് പറഞ്ഞു

നിരീ ക്ഷണ ക്യാമറകൾ പോളിംഗ് സ്റ്റേഷ്യന്റുകളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

തുടർന്ന് ഇവരെ നിർബന്ധിത മതപരിവർത്തനം നടത്തുകയും ചെയ്തു

സംഭവത്തിനുത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീക രിക്കുമെന്നും മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കു മെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞു

ഹോളി ആഘോഷ ത്തിനിടെയാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയത്

കുടുംബ പാർട്ടിയ്ുടെ ഏറ്റവും വലിയ പോരായ്മ പുതു തലമുറയ്ക്ക് വൃക്തിപ്രഭാവവും വിശ്വാസ്യതയും ഇല്ലാത്തതാണ്

ഇതുതന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് അഭിമുഖീകരി ക്കുന്ന പ്രശ്നമെന്നും ശ്രീ ജെയ്റ്റ്ലി ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു

ഡി നേതാവുമായ നവീൻ പട്നായിക് നയാഘട്ടിൽ നിന്നും ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ ക്യാമ്പയിന് തുടക്കമിട്ടു ഈ തിരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്ത മായ ഭൂരിപക്ഷം കിട്ടില്ലെന്നും ഗവൺമെന്റ് രൂപീകരണത്തിൽ ബി ജെ

നിർണായക ശക്തിയാകുമെന്നും ശ്രീ

സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് ബി ജെ ഡി

ദിപുവിൽ ഇന്ന് നടന്ന തിരഞ്ഞെ ടുപ്പു റാലിയെ ബി ജെ

ജനറൽ സെക്രട്ടറി റാം മാധവ് അഭിസം ബോധന ചെയ്തു ബാരപട്ടെയിൽ മുഖൃമന്ത്രിയും ബി ജെ

നേതാവുമായ സർബാനന്ദ് സോനോവാൾ ബി ജെ

സംസ്ഥാന അധ്യക്ഷൻ രഞ്ജിത് കുമാർ ദാസ് എന്നിവർ പാർട്ടി പ്രവർത്തകരു മായി നേരിട്ട് ആശയവിനിമയം നട്ടത്തിപ്പ അസമിലെ കോൺഗ്രസ് അധൃക്ഷിനും മുൻമന്ത്രിയുമായ റോക്കിബൽ ഹുസൈൻ മറ്റൊരു തെരഞ്ഞെടുപ്പു റാലിയിൽ പങ്കെടുത്തു സംസാരിച്ചു

ഐ

എഫ് എന്നീ പാർട്ടികളും ഇന്ന് പ്രചാരണത്തിനിറങ്ങി

ഐ

ഐ

ബി മുക്ത രാജൃമാകുമെന്ന് പ്രധാന മന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ടി ബി മുക്ത സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോക ടി ബി

ബി ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ ഗവൺമെന്റ്റുന്റെ പ്രവർത്തനങ്ങൾ ആരോഗൃ നിലവാരം ഉയർത്തുകയും ക്ഷെയ്രോഗികളെ സഹായിക്കുകയും ചെയ്തിട്ടുങ്ങള്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവർ ഉൾപ്പെട്ട ബഞ്ച് നേരത്തെ ആദിവാസി കൾക്കായുള്ള വനഭൂമി പിടിച്ചെടുക്കരുതെന്ന് ഗവൺമെന്റിനോട് നിർദേശിച്ചിരുന്നു

ഇന്ന് രാത്രി എട്ട് മണിക്ക് മുംഗ്ലെബ്യിൽ ആരംഭിക്കുന്ന രണ്ടാ മത്തെ കളിയിൽ മുംബൈ ഇന്ത്യൂൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും

അംബേദ്കർ അന്തർദ്ദേശീയ കേന്ദ്രത്തിൽ ആരംഭിക്കും റിസർവ് ബാങ്ക് ഗവർണർ ശക്തി കാന്ത ദാസ് ഉദ്ഘാടനം ചെയ്യും